ധനസഹായ ചോർച്ച തടയാൻ ആധാർ സഹായിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി

അയോധ്യ ഭൂമി തർക്കക്കേസ് സുപ്രീംകോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബഞ്ച് ഇന്ന് പരിഗണിക്കും

ഒരു ലക്ഷത്തി പതിനായിരം കോടി രൂപയുടെ ചോർച്ചയാണ് ഇത്തരത്തിൽ തടയാൻ കഴിഞ്ഞത്

എ ഭരണകാലത്ത് ഉണ്ടായ നാണയപ്പെരുപ്പ നിരക്ക് കുറച്ചു കൊണ്ടു വരാൻ എൻ

എ ഗവൺമെന്റിനായെന്ന് ശ്രീ

രാജ്യത്ത് തൊഴിലില്ലായ്മ നിലനിൽക്കുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം അദ്ദേഹം തള്ളി ഒരു സ്വകാര്യ ടി വി ചാനൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച റൈസിംഗ് ഇന്ത്യ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി

ചുരു ജില്ലയിൽ നടക്കുന്ന പൊതു സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും നാലു ദിവസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് പ്രധാനമന്ത്രി രാജസ്ഥാനിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച സംസ്ഥാനത്തെ ടോങ്ക് പട്ടണം പ്രധാനമന്ത്രി സന്ദർശിച്ചിരുന്നു

ഇസ്കോൺ ഭക്തർ ക്തിയ്യാറാക്കിയ പ്രത്യേക ഭഗവത് ഗീത അദ്ദേഹം പ്രകാശനം ചെയ്യും

കശ്മീരിലെ അനന്ത് നാഗ് ജില്ലയിലെ ബിജ്ബെഹറ സ്വദേശിയായ സജദ് ഭട്ട് ആണ് വാഹനത്തിന്റെ ഉടമ ജയ്ഷ് ഇ മുഹമ്മദ് എന്ന ഭീകരസംഘടനയിലെ അംഗമാണ് ഇയാളെന്നാണ് എൻഐഎ കണ്ടെത്തിയിരിക്കുന്നത് വിശദവിവരങ്ങളുമായി കൃഷ്ണ

ഭീകരാക്രമണത്തിന് ഉപയോഗിച്ചത് ചുവപ്പ് നിറത്തിലുള്ള മാരുതി ഇക്കോ കാർ ആണെന്ന് വ്യക്തമാക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളും സംഭവസ്ഥലത്ത് നിന്ന് എൻ ഐ എ കണ്ടെടുത്തു

എഫ് വാഹ്യന്റെ വ്യൂഹത്തിലേക്ക് സ് ഫോടക വസ്തു നിറച്ച കാർ ഇടിച്ചുക്ടിയ്റ്റുന്നതിന് തൊട്ടുമുമ്പുള്ള ദൃശ്യങ്ങളാണ് സി സി ടി വിയിൽ നീന്ന് കണ്ടെടുത്തതെന്ന് ദേശീയ അന്വേഷണ ഏജൻസി വൃത്തങ്ങൾ വ്യക്തമാക്കി ചാവേറായ ജയ്ഷ് ഇ മുഹമ്മദ് ഭീക്രർൻ ആദിൽ അഹമ്മദ് ധറാണ് കാർ ഓടിക്കുന്നതെന്ന് സി

പി ദൃശ്യങ്ങളിൽനിന്ന് വ്യക്തമാണ്

കോൺവേയിൽ നിന്ന് സി

എഫ് ജവാൻമാരേയും കയറ്റികൊണ്ടുള്ള ബസ് വരുന്നതിന് തൊട്ടുമുമ്പായി ഭീകരൻ കോൺവേയിൽ കാർ ഇടിച്ച് കയറ്റാനുള്ള ആദ്യ പരിശ്രമം നടത്തിയിരുന്നു എന്നാൽ രണ്ടാമത്തെ പരിശ്രമത്തിൽ ഭീകരൻ തന്റെ ലക്ഷ്യം പൂർത്തിയാക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

പാകിസ്ഥാൻ അതിർത്തിയിലെ നിലവിലെ സ്ഥിതിയും തീവ്രവാദ സംഘടനകൾക്ക് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണയും യോഗം വിലയിരുത്തി

ഇന്ത്യയ്ക്ക് എതിരായ ഭീകരവാദത്തെ പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇനി നദീജലം പങ്കുവെക്കാനാകില്ലെന്നും ശ്രീ ഗഡ്കരി ചൂണ്ടിക്കാട്ടി

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ജസ്റ്റിസുമാരായ എസ് എ ബോബ്ഡെ ഡി വൈ ചന്ദ്രചൂഡ് അശോക് ഭൂഷൺ എസ് എ നസീർ എന്നിവരടങ്ങിയ അഞ്ചംഗ ഭരണഘടനാ ബഞ്ചാണ് വാദം കേൾക്കുന്നത് അതേസമയം തർക്കഭൂമിയിൽ ആരാധന നടത്താനുള്ള തന്റെ മൌലികാവകാശം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി അടിയന്തിരമായി പരിഗണിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യസ്വാമി ഇന്നലെ സുപ്രിംകോടതിയെ സമീപിച്ചിരുന്നു

ന്യൂഡൽഹിയിൽ നടന്ന റൈസിംഗ് ഇന്ത്യ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്ര മന്ത്രി രാജ്യത്തിന്റെ കയറ്റുമതി രംഗം ആരോഗ്യപരമായ വളർച്ചയുടെ പാതയിലാണെന്നും നടപ്പുസാമ്പത്തിക വർഷത്തിൽ വളർച്ചാ നിരക്ക് ഏറ്റവും ഉയർച്ചയിലെത്തുമെന്നും അദ്ദേഹം അറിയിച്ചു

കൊറിയൻ ഉപഭൂഖണ്ഡത്തിലെ ആണവ നിർവ്യാപനം സംബന്ധിച്ച ചർച്ചകളാണ് ഇരുവരും തമ്മിൽ നടത്തുന്നത് വിയറ്റ്നാമിലെ ഹാനോയിലാണ് നാളെയും മറ്റെന്നാളുമായി ഇരുനേതാക്കളും കൂടിക്കാഴ്ച നടത്തുന്നത്

പ്രളയക്കെടുതിയിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് സഹകരണ വകുപ്പ് നടപ്പാക്കുന്ന കെയർ ഹോം പദ്ധതിയിലുൾപ്പെട്ട വീടുകളുടെ താക്കോൽദാനവും ഇന്ന് നടക്കും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിങ് വഴി നിർവഹിക്കും കെയർ ഹോം പദ്ധതിയ്ക്ക് കീഴിൽ മലപ്പുറം ജില്ലയിൽ സഹകരണവകുപ്പ് ആദ്യഘട്ടത്തിൽ നിർമാണം പൂർത്തീകരിച്ച മൂന്ന് വീടുകളുടെ താക്കോൽ ദാനം എംഎൽഎമാരായ എം ഉമ്മർ ടി എ അഹമ്മദ് കബീർ എന്നിവർ നിർവഹിക്കും

പുനരുദ്ധാരണിത്തിന് തിരഞ്ഞെടുത്ത സ്വകാര്യ കശുവണ്ടി വ്യവസായങ്ങ്ക്കുള്ള പുനർവായ്പാ വിതരണം അദ്ദേഹം കൊല്പം സ്ട്രോപ്പാനം ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും

ഇതിന്റെ ഭാഗമായി നടത്തുന്ന ഗൃഹോപകരണ വിപണനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയം ഹൈപ്പർ മാർക്കറ്റിൽ ഇന്ന് ഉച്ചയ്ക്ക് മന്ത്രി പി

കോട്ടയത്തിന് പുറമെ തിരുവനന്തപുരം കരുനാഗപ്പള്ളി എറണാകുളം എന്നീ ഹൈപ്പർ മാർക്കറ്റുകളിലും കൊട്ടാരക്കര പുത്തനമ്പലം മാള ചാലക്കുടി എടക്കര എന്നീ സൂപ്പർ മാർക്കറ്റുകളിലും തൃശൂർ പീപ്പിൾസ് ബസാറിലുമാണ് ഗൃഹോപകരണ വിപണനം തുടങ്ങുന്നത്

എൽ കമ്പനി വികസിപ്പിച്ച പുതിയ രണ്ട് ഉത്പന്നങ്ങളുടെ വിപണനോദ്ഘാടനം ഫാക്ടറി അങ്കണത്തിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം

എല്ലിൽ ഗവേഷണ വിഭാഗും ശ്ലക്തിപ്പെടുത്തി ഉത്പന്ന വൈവിധ്യം സാധ്യമാക്കുമെന്നും മന്ത്രി പ്ണ്ഞു

സർവകലാശാലാ ക്യാമ്പസിൽ ഓഫ് സ്റ്റേജ് മത്സരങ്ങളാണ് ഇന്നും നാളെയുമായി നടക്കുക സ്റ്റേജിനങ്ങൾ വ്യാഴാഴ്ച തുടങ്ങും രാവിലെ ഒമ്പതിന് രക്തസാക്ഷി അഭിമന്യുവിന്റെ മാതാപിതാക്കൾ കലോൽസവം ഉദ്ഘാടനം ചെയ്യും അടുത്തമാസം നാലു വരെയാണ് കലോത്സവം

ഇന്നലെ നടന്ന മത്സരത്തിൽ ഇറ്റലിയുടെ പയർ ലൂഗി ബസ്റ്റോയുമായി സമനില പങ്കിട്ട അഭിജിത്ത് നേരത്തെയുള്ള മത്സരത്തിൽ വിജയിയായിരുന്നു

കോമൺവെൽത്ത് ഗെയിംസ് വെള്ളി മെഡൽ ജേതാവ് മനിഷ് കൌശിക്ക് മുൻ ദേശീയ ചാമ്പ്യൻ ദൂര്യോധൻ സിംഗ് നേഗി രോഹിത് തോകാസ് എന്നിവരാണ് സ്ലെമി പ്രവേശനത്തിലൂടെ രാജ്യത്തിന് മെഡൽ ഉറപ്പാക്കിയത്